പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്ര തിജ്ഞ ഇന്ന്

ഇടുക്കിയിൽ ഇന്ന് യുഡിഎഫ് ഹർത്താൽ

ചിലയി ടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യത ങ്ങ ൽ രണ്ട് ദിവസത്തെ സൌദി സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് യാത്രതിരിക്കും റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോറത്തിന്റെ മൂന്നാം സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളുമായി നിർണ്ണായക പങ്കാളിത്തം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാന ങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകും സൌദിയിലെ സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് മോദി യുടെ സന്ദർശനം ഇരുരാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെ ടുത്താനാവശൃമായ നടപടികൾ ചർച്ച ചെയ്യും ഇന്തൃയുമായി സുപ്ര ധാന പങ്കാളിത്തം ഉറപ്പാക്കുന്ന കരാറിൽ ഇരുനേതാക്കളും ഒപ്പുവെ ച്ചേക്കും നരേന്ദ്രമോദിക്ക് സൽമാൻ രാജാവ് പ്രത്യേക വിരുന്ന് സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട് സൌദി കിരീടാവകാശി മുഹമ്മദ് സൽമാനുമായി ഇന്ത്യൻ സംഘം ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടു ണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റീട്ടെയിൽ ഔട്ലെറ്റുകൾ സൌദിയിൽ പ്രവർത്തനം ആരംഭിക്കാനും ഇന്ത്യയുടെ റൂപെ കാർഡ് സൌദി അറേബ്യയിൽ പ്രചാരത്തിൽ വരുത്തുന്നത് സംബന്ധിച്ചും കരാറുകൾ സന്ദർശന കാലത്ത് ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനാ സ്ഥാപകൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ മരണം ഭീകരതക്കെതിരായ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ലാണെന്ന് ലോക നേതാക്കൾ വിലയിരു ത്തി അമേരിക്കൻ സൈനിക നടപടിക്കിടെ വടക്ക് പടിഞ്ഞാറൻ സിറി യയിൽ ബാഗ്ദാദി സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയായിരു ന്നു സൈനിക നീക്കത്തിൽ കൂട്ടാളികളെല്ലാം കൊല്ലപ്പെട്ടതോടെ ഒരു തുരങ്കത്തിനുള്ളിൽ ബാഗ്ദാദി സ്വയം മരിക്കുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ബാഗ്ദാദിയുടെ മരണത്തിലേക്ക് നയിച്ച ആക്രമണ ത്തിൽ അമേരിക്കൻ സേനയെ ട്രംപ് അഭിനന്ദിച്ചു ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ നിർണായക വഴിത്തിരിവാണ് ബാഗ്ദാദിയുടെ മരണമെന്ന് തുർക്കി വിശേഷിപ്പിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ മരിച്ചെങ്കിലും അതുകൊണ്ട് ഭീകരതക്ക് അവസാനമാകില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി

ബാഗ്ദാദിയുടെ മരണം ഇസ്ലാമിക് സ്റ്റേറ്റിനേറ്റ കനത്ത ആഘാതമാ ണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് വിലയിരുത്തി

ഭീകരതക്കെ തിരായ പോരാട്ടത്തിൽ സൂപ്രധാന നിമിഷമാണ് ബാഗ്ദാദിയുടെ മര ണമെന്ന് ഇസ്രായേൽ അറിയിച്ചു അതേസമയം ബാഗ്ദാദി മരിച്ചെന്ന കാരൃത്തിൽ കൂടുതൽ സ്ഥിരീ കരണം ആവശ്യമാണെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു

നിയമസഭയിലേക്ക് പുതിയതായി തെരഞ്ഞെടുത്ത അംഗങ്ങൾ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യും മഞ്ചേ ശ്വരത്ത് വിജയിച്ച എം

ഖമറുദ്ദീൻ എറണാകുളത്തെ ടി

വി നോദ് അരൂരിലെ ഷാനിമോൾ ഉസ്മാൻ കോന്നിയിലെ കെ

ജ നീഷ് കുമാർ വട്ടിയൂർകാവിലെ വി

പ്രശാന്ത് എന്നിവരാണ് സ്പീക്കറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

ഏതാനും ഭേദഗതി ബില്ലുകൾ സബ്ജക്റ്റ് കമ്മറ്റികളുടെ പരിശോധ നയ്ക്ക് വിടണമെന്ന പ്രമേയം ഇന്നത്തെ സമ്മേളനം പരിഗണിച്ചേ ക്കും തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ ഇന്ന് തിരുവനന്തപുരത്ത് യു ഡി എഫ് യോഗം ചേരും കോന്നിയിലേയും വട്ടിയൂർക്കാവിലേയും പരാജയകാരണ ങ്ങൾ യോഗം വിലയിരുത്തും ് പാലാ ഉപതിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോം തോൽക്കാൻ കാരണം പി

ജോസഫ് വിഭാഗത്തെ അതിരുവിട്ടു പിന്തുണക്കുന്ന യുഡിഎഫ് നേതൃത്വത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി

സിഐ ടിയു മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് കൂടത്തായ് കൊലപാതക കേസിൽ പ്രതി ജോളി യുടെ ജാമ്യാപേക്ഷ താമരശേരി കോടതി ഇന്ന് പരിഗണിക്കും സിലി യുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാമ്യാപേക്ഷ സിലി യുടെ മകൾ ആൽഫൈന്റെ മരണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജോളിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജോളിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശൃപ്പെടാനാണ് അന്വേ ഷണ സംഘത്തിന്റെ ശ്രമം അതേസമയം കൂട്ടത്തായ് പൊന്നാമറ്റും ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് അധികൃതർക്ക് സമർപ്പിക്കും വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട പോക്സോ കോടതി വിധിക്കെതിരെ ഗവൺമെന്റ് അപ്പീൽ ഫയൽ ചെയ്യണമെന്ന് ജനാധി പത്യ മഹിള അസോസിയേഷൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു വിധി പകർപ്പ് പരിശോധിച്ച ശേഷം വീഴ്ച്ചയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പുന രന്വേഷണം നടത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നും ഭാര വാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു വാളയാർ കേസിൽ മരിച്ച കുട്ടി കൾക്ക് നീതി ലഭിക്കണമെന്നും അവരുടെ അമ്മയോടൊപ്പം മഹിള അസോസിയേഷൻ ഉണ്ടാവുമെന്നും അവർ വ്യക്തമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസി ഡന്റായി സൂസൻ കോടിയേയും സെക്രട്ടറിയായി പി സതീദേവി യേയും ട്രഷററായി സി

സുജാതയേയും സമ്മേളനം തെരഞ്ഞെ ടുത്തു

വാളയാർ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ തയാറാകണമെന്ന് കോഴിക്കോട്ട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു

വാളയാറിൽ പീഡനത്തിനിരയായി ദൂരൂഹ സാഹചരൃത്തിൽ മരിച്ച കൂട്ടികളുടെ വീട് രാവിലെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

വാളയാർ കേസ് പോലീസ് അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ഇന്ന് പാലക്കാട് എസ്

യൂത്ത് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിലും ഇന്ന് എസ്

വാളയാർ കേസിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഗവർണമെന്റ് ഇടപെടണമെന്ന് സിപിഐഎം പാലക്കാട്ട് ജില്ലാ കമ്മറ്റി ആവശ്യപ്പെട്ടു അന്വേഷണ സംഘമാണോ പ്രോസിക്യൂഷൻ ആണോ വീഴ്ച വരുത്തിയതെന്ന് ഗവർണമെന്റ് പരിശോധിക്കണമെന്നും ജില്ലാ കമ്മറ്റി ആവശ്യപ്പെട്ടു ഇടുക്കിയിൽ ഇന്ന് യുഡിഎഫ് ഹർത്താൽ പട്ടയം ക്രമീകരിക്കൽ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവ് ശൃപ്പെട്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്

അവൾ്യ സർവീസുകളെയും പരുമല തീർത്ഥാടകരെയും അഖില തിരുവിതാംകൂർ മലയരയ സഭയുടെ സമ്മേളനത്തിൽ പോകുന്നവരെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും

കേരളത്തിനും ലക്ഷദ്വീപിനുമിടയിൽ ബുധനാഴ്ച്ചയോടെ ന്യൂന മർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

ഇന്ന് ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവന ന്തപുരം ജില്ലകളിൽ യെലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്

മൂന്ന് ദിവസം മുമ്പ് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ കുഴൽ കിണ റിൽ വീണ രണ്ടര വയസ്സുകാരൻ സുജിത്തിനെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു

എസ് എൽ ആറാം സീസണിൽ മുംബൈ എഫ് സിയെ സമനിലയിൽ തളച്ച് ചെന്നൈയിൻ എഫ് സി ആദ്യ പോയ്ന്റ് കരസ്ഥമാക്കി ആദ്യ മൽസരത്തിൽ ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച മികവ് ചെന്നൈയിന് എതിരെ പുറത്തെടുക്കാൻ മുംബൈ എഫ്

കാലിക്കറ്റ് സർവ്വകലാശാല ഇന്റർസോൺ ഫുട്ബോൾ മത്സര ങ്ങൾ ഇന്ന് സർവ്വകലാശാല സ്റ്റേഡിയത്തിൽ ആരംഭിക്കും

നാല് സോണുകളിൽ നിന്ന് യോഗൃത നേടിയ പതിനാറ് ടീമുകൾ ചാമ്പൃൻഷിപ്പിൽ പങ്കെടുക്കും വൈസ് ചാൻസലർ ഡോ

മുഹമ്മദ് ബഷീർ മത്സരങ്ങൾ ഉദ്ഘാ ടനം ചെയ്യും കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ ബോക്സിങ്ങിൽ തിരുവനന്തപുരം ജേതാക്കളായി കൊല്ലം രണ്ടാംസ്ഥാനവും മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി ബംഗ്ലാദേശിലെ ചിറ്റഗോംഗ് ഷെയ്ഖ് കമാൽ ഇന്റർനാഷണൽ കപ്പിൽ ഇന്ന് സെമിയിൽ ഗോകുലം കേരള ആതിഥേയരായ അബാ നിയെ നേരിടും

കരമനയിൽ ദുരൂഹ മരണങ്ങളിലും സ്വത്ത് കേസിലും ക്രൈബ്രാഞ്ച് പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും ജയ മാധവൻ നായരുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിന് കത്തു നൽകും

താനൂരിലെ മൂസ്തീം ലീഗ് പ്രവർത്തകൻ ഇസഹാഖിന്റെ കൊല പാതക്കേസിൽ റിമാന്റിലുള്ള മൂന്ന് പ്രതികളേയും കസ്റ്റഡിയിൽ കിട്ടാൻ പൊലീസ് ഇന്ന് പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോട തിയിൽ അപേക്ഷ നൽകും

ശബരീഷ് കുമാ റാണ് ജനറൽ സെക്രട്ടറി